ഇന്ത്യയിൽ വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിനുള്ള നടപടി ക്രമങ്ങൾ ഇന്ന് ആരംഭിച്ചു

ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഇന്ത്യയിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

രാജ്യത്തിന്റെ സായുധ സേനയിൽ അല്ല മറിച്ച് ചൈനീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമെന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ

ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക്കും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചത് കോവാക്സിൻ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുള്ള രജിസ്ട്രേഷൻ ന്യൂഡൽഹി എയിംസ് ആരംഭിച്ചു

തദ്ദേശീയ കോവിഡ് പ്രതിരോധ മരുന്ന് വികസിപ്പിക്കാനായത് വലിയ നേട്ടമാണെന്നും മനുഷ്യരിലുള്ള പ്രാഥമിക് ഘട്ട പരീക്ഷണത്തിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേരാണ് മുന്നോട്ട് വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനിടെ കോവിഡ്മരണനിരക്ക് കുറയ്ക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ന്യൂഡൽഹി എയിംസ് രാജ്യത്തുടനീളമുള്ള അത്യാഹിതവിഭാഗം ഡോക്ടർമാരുമായി ഇ ഐ

എന്നപേരിൽ ഒരു വീഡിയോ കൺസൾട്ടേഷൻ പ്രോഗ്രാം ആരംഭിച്ചു

ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഇന്ത്യയിലാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം ഈന്ന് ഏഴ് ലക്ഷം കടന്നു